ഡി

ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര രാവിലെ മന്ത്രി എ

ശനിയാഴ്ച പുലർച്ചെയോടെ ലാന്റർ ചന്ദ്രന്റെ ഉപരിതല ത്തിൽ ഇറക്കാനാണ് തീരുമാനം ലാന്റർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനോട് ഏറ്റവും അടുത്തെത്തുമ്പോൾ ആയിരിക്കും ലാന്റിംഗ്

ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഇന്നലെ കോട്ടയത്ത് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം നിയോഗിച്ച ഏഴംഗ സമിതിയുടെ അധ്യക്ഷൻ തോമസ് ചാഴികാ ടൻ ഇന്നലെ വൈകീട്ട് ജോസ് ടോമിന്റെ പേര് യു ഡി എഫ് നേതൃത്വത്തിന് സമർപ്പിച്ചു തുടർന്നായിരുന്നു പ്രഖ്യാപനം ജോസ് ടോമിനെ അംഗീകരി ക്കില്ലെന്ന് പി ജെ ജോസഫ് ആദ്യം നിലപാടെടുത്തെങ്കിലും പിന്നീട് യു ഡി എഫ് തീരുമാനം അംഗീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി തന്നെ രണ്ടില ചിഹ്നം വേണ്ട എന്ന് അറിയിച്ചതിനാൽ അതേക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് ജോസഫ് അറിയിച്ചു

എ സ്ഥാനാർത്ഥിയെ ഇന്ന് ഉച്ചുയോടെ പ്രഖ്യാപിക്കുമെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് അറി യിച്ചു സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് അയച്ചുകൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവർണറായി ആരിഫി മുഹമ്മദ് ഖാനെ നിയമിച്ച നടപടി വിവാ ദമാക്കാൻ ചിലർ ശ്രമിക്കുന്നതായി ശ്രീധ്രൻപിള്ള ആരോപിച്ചു തതാധി ഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് ആരിഫ് മുഹമ്മദ് ഖാനെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന നടപടിയാണ് അദ്ദേഹത്തിന്റെ നിയമനമെന്നും ശ്രീധരൻപിള്ള വിലയിരുത്തി

സമൂഹത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ നടക്കുന്ന നീക്കങ്ങൾ ഗൌരവത്തോടെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചു കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസമാണ് സമൂഹത്തിന്റെ മതേതര ചിന്താ ഗതിക്ക് അടിസ്ഥാനമെന്നും പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ പായം പഞ്ചായത്തിന്റെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറിയും വായനാമുറിയും മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ വായനശാല കളിലും ലൈബ്രറികളിലും വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

പഞ്ചായത്തിന്റെ ഐ എസ്

രാവിലെ കേരള പൊലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

തിരുവോണത്തിലേക്ക് നീളുന്ന പത്ത് ദിവസത്തെ ആഘോ ഷങ്ങൾക്ക് ഇന്ന് തുടക്കം മാവേലിയെ വരവേൽക്കാൻ വീട്ടുമുറ്റങ്ങളിൽ ഇന്നുമുതൽ പൂക്കളമൊരുങ്ങും പ്രളയദുരന്തത്തിന്റെ സാഹചര്യത്തിലും പൊലിമ നഷ്ടപ്പെടാതെ ഓണാഘോഷം സംഘടിപ്പിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം

സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഘോഷ്യാത്ര രാവിലെ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും നാടൻ കലാരൂപങ്ങളും വാദ്യഘോഷ ങ്ങളും അത്തച്ചമയത്തിന് മാറ്റുകൂട്ടും രാജഭരണകാലത്ത് കൊച്ചിരാജാവ് പങ്കെടുത്തിരുന്ന അത്തച്ചമയത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന പരമ്പരാ ഗത ചടങ്ങാണ് ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഒരാഴ്ച തുടരും അത്തച്ചമയ ഘോഷയാത്ര കണക്കിലെടുത്ത് ഇന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു

ദർവ്വെട്ടറ പ്രയാസങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം ആനുകൂല്യങ്ങൾ മുടക്കില്ലെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് ആലപ്പുഴയിൽ അറിയിച്ചു

ഗവൺമെന്റ് ജീവനക്കാരുടെ ബോണസും മറ്റാനുകൂല്യങ്ങളും കൃത്യസമ യത്ത് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു

പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഇത്തവണ ഓണം സജീവ മായിത്തന്നെ ആഘോഷിക്കുമെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു

കോട്ടമൈതാനത്ത് ജില്ലാ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

മുഖ്യമന്ത്രി പിണറായി വിജയൻ വിപണി ഉദ്ഘാടനം ചെയ്യും ഈമാസം പത്തുവരെ സംഘടിപ്പിക്കുന്ന മേള യിൽ മുന്നൂറ് കോടി രൂപയുടെ വില്പനയാണ് ലക്ഷ്യമിടുന്നത്

ഈ ഗവൺമെന്റ് അധികാ രത്തിൽ വന്ന ശേഷം സപ്ലൈകൊ ഉത്പന്നങ്ങൾക്ക് വില വർധന ഉണ്ടായി ട്ടില്ലെന്നും ഭക്ഷ്യധാന്യങ്ങൾക്കും പയറുവർഗങ്ങൾക്കും വില കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

കോഴി ക്കോട് കുന്ദമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

പ്രാഥമിക ആശു പത്രികളെ മറന്നതുകൊണ്ടാണ് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വീഴ്ചയെന്ന് കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടു

ലോക കോടതിയുടെ ഉത്തരവ നുസരിച്ചാണ് നടപടിയെന്ന് പാക്കിസ്ഥാൻ അറിയിച്ചു

രുട്ടിട്ട്ട്ട്ട്ട്ട്ട ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ മൂന്നാമത് ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് രാവിലെ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ ആരംഭിക്കും അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിരുന്നു ഇന്ന് വിജയിച്ചാൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കും

ഇതോടെ ദോഹയിൽ ഈമാസം അവസാനം ആരംഭിക്കുന്ന ലോക ചാമ്പൃൻഷിപ്പിലേക്ക് ജിൻസൺ അർഹത നേടി ദർവ്വെടു ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് ഒളിംപ്യൻ മാനുവൽ ഫ്രെഡറിക്കിന് ഇന്ന് രാവിലെ പത്തരക്ക് കോഴിക്കോട് ബി

ചടങ്ങിൽ പി ടി എ യുടെ സഹായത്തോടെ നിർമിച്ച ബാസ്ക്കറ്റ് ബോൾ കോർട്ടും ബി ഇ എം സ്പോർട്സ് അക്കാദമിയും സി എസ് ഐ മലബാർ ഇടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഉദ്ഘാടനം ചെയ്യും

സി ബസ്റ്റുകൾ ഓടിക്കുന്ന കാരൃം പരിഗണിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ബാലുശേരി കോഴിക്കോട് കെ എസ് ആർ

സി ചെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും

ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിലെ കാറികളുടെ പ്രവർത്തന ത്തിന് മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നും അനധികൃത കാറികൾ അട ച്ചുപൂട്ടാൻ നടപടിയെടുക്കണമെന്നും പരിഷത്ത് നിർദ്ദേശിച്ചു

എന്നാൽ കാസർകോട് കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് മാഅത്ത് പരിധിയിൽ മുഹറം ഒന്ന് ഇന്ന ലെയായി പരിഗണിച്ച് മുഹറം പത്ത് അടുത്ത് ചൊവ്വാഴ്ച ആചരിക്കാൻ സമസ്ത ഉൾപ്പെടെ സംഘടനകൾ അറിയിച്ചു

കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാവിലെ ദേവഗണപതിയെ എഴുന്നള്ളി ക്കും രാത്രി തളി കുളത്തിൽ ദേവഗണപതി തെപ്പരഥോത്സവം നടക്കും കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ പുലർച്ചെ ആരംഭിച്ചു

ഗണേശോത്സവത്തോടനുബന്ധിച്ച് കണ്ണൂർ വള പട്ടണം പൊലീസ് സർക്കിൾ പരിധിയിൽ ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു രദേഷ്ടെടു ഇന്നലെ അന്തരിച്ച പുല്ലാങ്കുഴൽ വിദാനും ആകാശവാണി കോഴിക്കോട് മുൻ സ്റ്റേഷൻ ഡയറക്ടറുമായിരുന്ന ജി എസ് ശ്രീകൃഷ്ണന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് ബെങ്കലുരു പനത്തൂർ ശ്മശാനത്തിൽ നടത്തും